നിയമസഭയുടെ വജ്ജൂബിലി സമാപന ആഘോഷം നാളെ ഉദ്ഘാടനം ചെയ്യും

റെയിൽവേ സ്റ്റേഷൻ ബിജെപി അധ്യക്ഷൻ അമിത്ഷാ ഇന്ന് ഉദ്ഘാടനം ചെയ്യും

സിന്ധു ഇന്നിറങ്ങും എതിരാളി ഒളിമ്പിക് ചാമ്പ്യൻ കരോളിന മരിൻ

ഒരു കുടുംബത്തിന് അഞ്ച് ലക്ഷം രൂപവരെ ആരോഗ്യ ഇൻഫ്യുറ്റൾസ് പ്രദാനം ചെയ്യുന്നതാണ് പദ്ധതി

ആരോഗ്യ മന്ത്രാലയത്തിലേയും നിതി ആയോഗിലേയും പ്രധാനമന്ത്രിയുടെ ഓഫീസിലേയും ഉന്നതോദ്യോഗസ്ഥർ പദ്ധതിയോടനുബന്ധിച്ചുള്ള ഭൌതീക സൌകര്യവികസനം ഓരോ സംസ്ഥാനവും കൈക്കൊണ്ടിട്ടുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയവ ശ്രീ നരേന്ദ്രമോദിയെ ധരിപ്പിച്ചു

നാളെ നിയമസഭാ സമുച്ചയത്തിൽ നടക്കുന്ന ഫെസ്റ്റിവൽ ഓൺ ഡെമോക്രസി ഉദ്ഘാടനം ചെയ്യും

ഡൽഹിയിൽ നിന്ന് വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ വരുന്ന അദ്ദേഹം വ്യോമ്സെന്റിയുടെ ടെക്നിക്കൽ ഏരിയയിൽ ഇറങ്ങിയ ശേഷം നേക്ക് രിജ്ഭവിനിലേക്ക് പോകും

നിയമസഭയുടെ വജ്രജൂബിലി ആഘോഷങ്ങളുടെ സമാപനം കുറിച്ചുള്ള ഫെസ്റ്റിവൽ ഓഫ് ഡെമോക്രസി അദ്ദേഹ് ഉദ്ഘാടനം ചെയ്യും തുടർന്ന് വൈകിട്ടോടെ അദ്ദേഹം കൊച്ചിയിലേക്ക് പോകും

ചൊവ്വാഴ്ച രാവിലെ ഒൻപതിന് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമായും ജഡ്ജിമാരുമായും കൂടിക്കാഴ്ച നടത്തും തുടർന്ന് ഹെലികോപ്റ്ററിൽ തൃശ്ശൂരിലേക്ക് പോകും തൃശൂർ സെന്റ് തോമസ് കോളേജിന്റെ സെന്റിനറി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യും

തുടർന്ന് ഉച്ചകഴിഞ്ഞ് തിരികെ കൊച്ചിയിലെത്തി അവിടെനിന്ന് പ്രത്യേക വിമാനത്തിൽ അദ്ദേഹം ഡൽഹിയിലേക്ക് പോകും

മൂന്ന് സംസ്ഥാനങ്ങളിലെ പര്യടനത്തിന്റെ ഭാഗമായി രാഷ്ട്രപതി ശ്രീ കോവിന്ദ് ഇന്നലെ വൈകിട്ട് ഹൈദ്രാബാദിലെത്തി

കസാക്കിസ്ഥാൻ കിർഗിസ്സാൻ ് എന്നിവയുൾപ്പെടെ ത്രിരാഷ്ട്ര സന്ദർശനത്തിലാണ് വിദ്ദേശ്രക്ടാര്യ്മന്ത്രി അവസാനപാദത്തിൽ ഉസ്ബക്കിസ്ഥാനിൽ എത്തിയിരിക്കുന്ന ശ്രീമതി

വാണിജ്യം സമ്പദ്ഘടന പ്രതിരോധം സുരക്ഷ എന്നീ വിഷയങ്ങളിലും മേഖല ആഗോള പ്രശ്നങ്ങളിലും ഇരുനേതാക്കളും ചർച്ച നടത്തി

ജെ പി അദ്ധ്യക്ഷൻ അമിത് ഷാ ഇന്ന് ഉദ്ഘാടനം ചെയ്യും മുഗൾസറായ് എന്നായിരുന്നു ഈ റെയിൽവേസ്റ്റേഷൻ നേരത്തെ അറിയപ്പെട്ടിരുന്നത് പുനർ നാമകരണ ഉദ്ഘാടന ചടങ്ങിൽ കേന്ദ്ര റെയിൽവേമന്ത്രി പീയുഷ് ഗോയൽ ഉത്തർ പ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എന്നിവർ പങ്കെടുക്കും ഒരു പാസഞ്ചർ ട്രെയിന്റെയും വനിതാ ജീവനക്കാർ നേതൃത്വം നൽകുന്ന ഒരു ഗുഡ്സ് ട്രെയിനിന്റെയും സ്മാർട്ട് യാർഡ് പദ്ധതിയുടെയും ഫ്ളാഗ് ഓഫ് കർമ്മവും നടക്കും

ഇതിനുള്ള ധാരണാപത്രത്തിൽ കേന്ദ്ര മനൂഷ്ട്രീപ്രിഭവശേഷി വികസന മന്ത്രാലയവും ആരോഗ്യകുടുംബക്ഷേമ് മന്ത്രാലയവും ഉത്തർപ്രദേശ് ഗവൺമെന്റുമായി വാരാണസിയിൽ ഒപ്പു വച്ചു ഇതൊരു ചരിത്ര നിമിഷമാണെന്നും സ്പ്നം യ്യാ്മാർത്ഥ്യമാവുകയാണെന്നും ഈ അവസരത്തിൽ സംസാരിക്ക്വെ കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേകർ പറഞ്ഞു

സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ എസ്

ഐ എലീറ്റ് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്രപ്രധാനൊപ്പം ഭുവനേശ്വറിൽ ഉത്ഘാടനം ചെയ്യുകയായിരുന്നു ശ്രീ

ഈ രംഗത്ത് ഒഡീഷ ഹബ്ബ് ആയി മാറാൻ കേന്ദ്രം ആഗ്രഹിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു ഒഡീഷ് ബീഹാർ ഝാർഖണ്ഡ് പശ്ചിമബംഗാൾ കിഴക്കൻ ഉത്തർപ്രദേശ് എന്നിവിടങ്ങളുടെ വികസനത്തിന് കേന്ദ്രം ഊന്നൽ നല്കുന്നതായും അദ്ദേഹം പറഞ്ഞു

മഹാരാഷ്ട്രയിലെ ഔറംഗബാദിൽ പ്രധാനമന്ത്രി ജലസേചനപദ്ധയിൻകീഴിലെ പ്രവർത്തനങ്ങളും ദേശീയപാതാ വികസനമ്പും വിലയിരുത്തുന്നതിനുള്ള യോഗത്തെ അഭിസ്ംബോധന ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി നിയിൻ ഗഡ്കരി

കൂടുതൽ സൌകര്യങ്ങളോടെയുള്ള പുതിയ തുകൽ ഉത്പന്ന കേന്ദ്രങ്ങൾക്ക് രൂപം നല്കുമെന്നും ഇതിനായി സംസ്ഥാന ഗവണ്മെന്റുകൾക്ക് എല്ലാവിധ പിൻതുണയും ഉറപ്പു നല്കുന്നതായും ചെന്നൈയിൽ തുകൽ കയറ്റുമതി കൌൺസിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ അദ്ദേഹം പറഞ്ഞു

കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് ഏജൻസികൾ നടപ്പാക്കിയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ സംഘം വിലയിരുത്തും ദേശീയ ദുരന്തനിവാരണ നിർവ്വഹണ സമിതിയിലേയും ദേശീയ ദുരന്തനിവാരണ ദുരിതാശ്വാസ നിധിയിലേയും ഹൈവേ റോഡ് ഗതാഗതമന്ത്രാലയത്തിലേയും ഉദ്യോഗസ്ഥരടങ്ങുന്ന സംഘമാണ് സ്ഥിതി ഗതികൾ അവലോകനം ചെയ്യുന്നത്

ബുധനാഴ്ച രാവിലെ എത്തുന്ന സംഘം ജില്ലാ കളക്ടറുമായി ചർച്ച നടത്തിയശേഷം പ്രളയ ബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കും

കേന്ദ്ര സംഘം വിശദമായി മുഖ്യമന്ത്രിയും മന്ത്രിമാരുമായി തിരുവനന്തപുരത്ത് ചർച്ച നടത്തുമെന്നും മന്ത്രി ജി സുധാകരൻ അറിയി ച്ചു ആലപ്പുഴയിലെ വെള്ളപ്പൊക്ക ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വിലയിരുത്തും

ലോക ചാമ്പ്യൻഷിപ്പിൽ സിന്ധുവിന്റെ തുടർച്ചയായ രണ്ടാം ഫൈനലാണ് ഇത്

പഞ്ചാബിൽ നാല് ലക്ഷം മ്മട്രിക് ടൺ ധാന്യങ്ങൾ ശേഖരിക്കുന്നതിനുള്ള സംവിധാനം നിർമ്മാണത്തിലാണെന്ന് ഛണ്ഡീഗഡിൽ എഫ്സിഐ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ചയ്ക്കു ശേഷം അദ്ദേഹം മാധ്യമങ്ങളെ അറിയിച്ചു

റുപേ ഡെബിറ്റ് കാർഡ് ഭീം ആപ്പ് യു

ടി കൌൺസിൽ യോഗത്തിൽ അംഗീകരിച്ചതായി മന്ത്രി പീയൂഷ് ഗോയൽ അറിയിച്ചു സൂക്ഷ്മ ചെറുകിട ഇടത്തരം വൃവസായ യൂണിറ്റുകളിലെ ചരക്കു സേവന നികുതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സമിതി രൂപീകരിക്കുവാനും തീരുമാനമായി